പ്രളയത്തിൽ കുടുങ്ങിയവരെ കൂട്ടത്തോടെ രക്ഷപ്പെടുത്താൻ സൈന്യ ത്തിന്റെ നേതൃത്വത്തിൽ തീവ്രശ്ര്മം ആരംഭിച്ചു മണ്ണിടിച്ചിലുണ്ടായ പാലക്കാട് തൃശൂർ ദേശീയപാത യിലെ കുതിരാനിൽ വൈകിട്ടോടെ ഗതാഗതം പുനഃസ്ഥാ പിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ

മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ഭൌതിക ശരീരം അല്പസമയത്തിനകം വിലാപയാത്രയായി രാഷ്ട്രീയ സ്മൃതിസ്ഥലിലേക്ക് കൊണ്ടുപോകും കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് സംസ്ഥാനത്തെത്തും സംസ്ഥാനത്തെ പ്രളയക്കെടുതി സംബന്ധിച്ച് മുഖൃമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ അറിയിച്ചു പ്രള യബാധിത പ്രദേശങ്ങളിലെ നിലവിലെ അവസ്ഥയും രക്ഷാപ്ര വർത്തനങ്ങളും ചർച്ച ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേ യിയുടെ സംസ്കാരചടങ്ങിൽ പങ്കെടുത്തശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുക മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി നാളെ പ്രളയമേഖലയിൽ വ്യോമ നിരീ ക്ഷണം നടത്തും

കൂടുതൽ ഹെലികോപ്ടറുട ്രക്ഷാപ്ര വർത്തനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങളും നൽകണ മെന്ന് രാജ്യരക്ഷാ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു ചാലക്കുടി ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ ഹെലികോപ്ടർ വഴി മാത്രമേ രക്ഷപ്പെടുത്താനാവൂ

വയനാട്ടിലും ഇടുക്കിയിലും മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് പെരിയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു

ഒരു ലക്ഷം ഭക്ഷണപ്പൊതികൾ കേന്ദ്രം നൽകിയി ട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വരും ദിവസങ്ങളിലും ജന ങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഒഴിഞ്ഞുപോകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചാൽ ജനങ്ങൾ അത് അനുസരിക്കണമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പ്രളയത്തിൽ കുടുങ്ങിയവരെ കൂട്ടത്തോടെ രക്ഷപ്പെടുത്തുന്നതിന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തീവ്രശ്രമം ആരംഭിച്ചു കൂടുതൽ ഹെലികോപ്ടറുകളും ബോട്ടുകളും ഉപ യോഗിച്ചാണ് സൈന്യം രംഗത്തിറങ്ങിയിരിക്കുന്നത്

രക്ഷപ്പെടുത്തിയവർക്കായി കൊച്ചിയിലെ നാവികസേനാ ആസ്ഥാനത്ത് ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് ഫോർട്ടുകൊച്ചിയിലും ആലുവയിലും നാവികസേനയുടെ ദുരിതാശ്ചാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് മത്സ്യബന്ധന ബോട്ടുകളുമായി മത്സ്യ ത്തൊഴിലാളികളും പ്രളയമേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്

കേന്ദ്ര ത്തിൽനിന്ന് നാല് വിമാനം ഭക്ഷണം തിരുവനന്തപുരത്ത് എത്തി ച്ചിരുന്നു കൂടുതൽ ഭക്ഷണം വൈകാതെ എത്തും

മഴയും പ്രളയവും ദുരിതം സൃഷ്ടിച്ച മേഖലകളിൽ ഭക്ഷണത്തിന്റേയും കുടിവെള്ള ത്തിന്റേയും ഏകോപനം വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ

റാവുവിനുമാണ് ദുരിതാശ്വാസപ്രവർത്തനങ്ങൾ നടത്തുന്ന രക്ഷാ പ്രവർത്തകരുടെയും സേനയുടെയും വിന്യാസത്തിന്റെയും ഇതു മായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർമാരുമായി ഏകോപനം നടത്തു ന്നതിന്റേയും ചുമതല ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ ജ്യോതിലാലിനും ഊർജ്ജ സെക്രട്ടറി സഞ്ജയ് കൌളിനുമാണ് ദുരിതാശാസ ക്യാമ്പുകളും അനുബന്ധ പ്രവർത്തനങ്ങളും സംബ ന്ധിച്ച് ജില്ലാ കലക്ടർമാരുമായി ഏകോപനം നടത്തുന്നതിന് വൃവ സായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ ഇളങ്കോവനെ ഗ്യവൺമെന്റ് ചുമതലപ്പെടുത്തി

ടി സി ബസ്സു കൾ അനുവദിച്ചതായി മന്ത്രി എ

ശശീന്ദ്രൻ പറഞ്ഞു കോഴി ക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ സർവ്വീസ് നിർത്തിവെച്ച റൂട്ടുകളിൽ യാത്രാപ്പശ്നം പ്രിഹരിക്കു ന്നതിന് കെ

സി സർവ്വീസ് നടത്തുമെന്ന് മന്ത്രി കോഴി ക്കോട്ട് അറിയിച്ചു മണ്ണിടിച്ചിലുണ്ടായ പാലക്കാട് തൃശൂർ ദേശീയ പാതയിലെ കുതിരാനിൽ ഇന്ന് വൈകിട്ടോടെ ഒരു ഭാഗത്തുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി എ

ആറു വരിപ്പാതയിലെ മണ്ണിടിച്ചിൽമൂലം വടക്കഞ്ചേരി മണ്ണുത്തി ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ഇന്ധന ടാങ്കറുകളും കുടുങ്ങിക്കിടക്കുന്നതിനാൽ പാലക്കാട് ജില്ലയിൽ ഇന്ധനക്ഷാമം നേരിടുകയാണ് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും മൂലം ജില്ലയിലെ ഗതാഗതം പലയിടത്തും സ്തംഭിച്ചിരിക്കുകയാ ണ് മഴക്കെടുതി സംസ്ഥാനത്തെ ഗതാഗത്തെ പ്രതികൂലമായി ബാധിച്ച സ്ഥിതിയാണ്

കൊച്ചി സേലം ദേശീയപാതയിൽ കളമശ്ശേരി അപ്പോളോ ടയേ ഴ്സിന് മുമ്പിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ് തൃശൂർ ചാലക്കുടിയിൽ എഴുപതോളം പേർ രക്ഷ തേടിയ കെട്ടി ടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുവീണ് ഏഴുപേര്ര കാണാനില്ലെന്ന് റിപ്പോർട്ട് കുത്തിയതോട് സെന്റ് സേവ്യേഴ്സ് പള്ളിയുടെ കെട്ടിട മാണ് തകർന്നത് തൃശൂരിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപ പ്പെട്ടു ചാലക്കുടി ടൌണും പാലിയേക്കര ടോൾപ്പാസയും വെള്ള ത്തിൽ മുങ്ങി

കുണ്ടൂ രിൽ അയ്യായിരം പേർ കഴിയുന്ന ദുരിതാശ്ചാസ ക്യാമ്പിലേക്ക് വെള്ളം കയറി

വീട്ടിൽ വെള്ളം കയറിയതിനെത്തുടർന്ന് ടെറസ്സിലേക്ക് മാറിയ അമ്മയും മകനുമാണ് മരിച്ചത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ മലപ്പുറം ജില്ലയിൽ കാറികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇനിയൊരറി യിപ്പുണ്ടാകുന്നതുവരെ ജില്ലാ കലക്ടർ നിരോധനമേർപ്പെടുത്തി കനത്ത മഴ തുടരുന്നതിനാൽ തുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടാണ് നടപടി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെ ടുത്തത് അപകടമേഖലയിൽനിന്ന് മാറിത്താമസിക്കാൻ ആവശ്യപ്പെ ട്ടാൽ ജനങ്ങൾ ഉടൻ അതിന് തയ്യാറാകണമെന്ന് കലക്ടർ നിർദ്ദേ ശിച്ചു മാറാൻ തയ്യാറാകാത്തവരെ പൊലീസ് സഹായത്തോടെ മാറ്റാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വനംവകുപ്പ് തന്നെ അടിയന്തിരമായി മുറിച്ച് മാറ്റണമെന്നും കലക്ടർ ആവശ്യപ്പെ ട്ടു

ദുരന്ത നിവാരണ സേന ആവശ്യമെങ്കിൽ കോഴിക്കോ ട് വയനാട് ജില്ലകളിൽക്കൂടി സേവനം നൽകും ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു തിരുനാവായയിൽ റോഡി ലേക്ക് വെള്ളം ഇരിച്ചു കയറി കുറ്റിപ്പു റം തിരൂർ സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

ഒരാഴ്ചക്കിടെ പത്തുപേ രാണ് ജില്ലയിൽ മരിച്ചത് കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്

കൊട്ടിയൂർ പഞ്ചായത്തിലെ മന്തഞ്ചേരി എസ് എൻ എൽ പി സ്കൂളിലെ ദുരി താശ്വാസ കൃാമ്പിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരുള്ള ത്

തൃശൂർ ജില്ലയിലും മഴയ്ക്ക് അല്പം ശമനമായി

നാലുപ്പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ണിനടിയിൽ എട്ടുപേരെ ങ്കിലും ഉണ്ടാകുമെന്ന് സംശയിക്കുന്നതായി പൊലീസ് പറഞ്ഞു ഇടുക്കി ജലസംഭരണിയിൽനിന്ന് കൂടുതൽ ജലം തുറന്നുവി ടില്ല

ഇടമലയാർ അണക്കെട്ടിൽ വെള്ളത്തിന്റെ അളവ് പരമാ വധി സംഭരണശേഷിക്ക് താഴെയെത്തി

കാസർകോട്ട് അതിജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മഴക്കെടുതികൾക്കിടയിൽ വ്യാജപ്രചാരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരി ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി യഥാർത്ഥ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരാൻ സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

മിക്കയിടങ്ങളിലും പെട്രോൾപമ്പുകൾ അടഞ്ഞ് കിടക്കുക യാണ് ഇന്ധനം ലഭിക്കുന്ന പമ്പുകളിൽ നല്ല തിരക്കാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭൌതി കശരീരം അല്പസമയത്തിനകം വിലാപയാത്രയായി ബി ജെ പി ആസ്ഥാനത്തുനിന്ന് രാഷ്ട്രീയ സ്മൃതിസ്ഥലിലേക്ക് കൊണ്ടുപോ കും

വാജ്പേയിയുടെ ഔദ്യോഗിക വസതിയായ കൃഷ്ണമേനോൻ മാർഗ്ഗിലെ വീട്ടിൽനിന്ന് രാവിലെ എട്ടുമണിയോടെ ദീൻദയാൽ ഉപാദ്ധ്യായ മാർഗ്ഗിലെ ബി ജെ പി ആസ്ഥാനത്തേക്ക് ഭൌതികശ രീരം കൊണ്ടുപോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി

പി അധ്യക്ഷൻ അമിതാഷായും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ പ്രമു ഖർ അദ്ദേഹത്തിന് അന്തമാഞ്ജലി അർപ്പിച്ചു നേരത്തെ വസതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരസേനാ മേധാവി ബിപിൻ റാവത്ത് നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാൻബ ആർ

എസ് മേധാവി മോഹൻ ഭഗവത് തുടങ്ങിയ വർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു സമൂഹത്തിന്റെ നാനാതുറകളിൽപെട്ട ആയിരങ്ങളും അദ്ദേഹത്തിന്റെ വസതിയി ലെത്തി പ്രണാമമർപ്പിച്ചു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സംസ്ഥാന ഗവർണർ പി സദാശിവം ഡൽഹിയിലെത്തിയിട്ടുണ്ട്

മലയാളികളുടെ കലണ്ടറായ് കൊല്ലവർഷ ത്തിലെ പുതുവത്സര ദിനംകൂടിയായ ചിങ്ങം ഒന്ന് സംസ്ഥാനത്ത് കർഷകദിനമായാണ് ആചരിച്ചുവരുന്നത് കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ എടപ്പാളിൽ നട ത്താനിരുന്ന മികച്ച കർഷകർക്ക് പുരസ്കാര ദാനമടക്കം കർഷക ദിനാചരണ പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാ ണ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഴുവനും ദുരിതാ ശ്വാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ ്രനിർദ്ദേശിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലും പ്രളയജലവുംമൂലം കോഴിക്കോടിനും തിരു വനന്തപുരത്തിനുമിടയിൽ ട്രെയിൻ സർവ്വീസുകൾ റദ്ദാക്കി

മംഗലുരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് മംഗലുരു സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ ഏറനാട് എക്സ്പ്രസ് മംഗലുരു കോയമ്പത്തൂർ എക്സ്പ്രസ് കണ്ണൂർ തിരൂവനന്ത പുരം ജന ശതാബ്ദി എക് സ് പ്രസ് കണ്ണൂർ ആ ല പ്പു ഴ എക്സ്പ്രസ് പാലക്കാട് എറണാകുളം മെമു സർവ്വീസ് എന്നീ ട്രെയിനുകളാണ് ഇന്ന് റദ്ദാക്കിയത് ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് ലോക മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് മംഗ ലുരു കോയമ്പത്തൂർ പാസഞ്ചർ ചണ്ഡിഗഢ് കൊച്ചുവേളി സമ്പർക്കക്രാന്തി എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ന് കോഴിക്കോട്ട് യാത്ര അവസാനിപ്പിക്കും കോഴിക്കോട്ടുനിന്ന് മംഗലാപുരത്തേക്കും കണ്ണൂരിലേക്കും ഇന്ന് രണ്ട് പ്രത്യേക പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കുമെന്ന് അധി കൃതർ അറിയിച്ചു

ഹയർ സെക്കൻ്ററി വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സപ്തി മെന്ററി പരീക്ഷകൾ മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും